രാജ്പഥിൽ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പരേഡിന്റെ അഭിവാദ്യം ഏറ്റുവാങ്ങി ത ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു ത സംസ്ഥാനത്തിന്റെ വികസന സംരംഭങ്ങൾ നാടിന് അർഹിക്കുന്ന അംഗീകാരം ലഭ്യമാക്കിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

ഡൽഹിയിലെ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വർണ്ണാഭമായ പരേഡിന്റെ അഭിവാദ്യം ഏറ്റുവാങ്ങി ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ മെസ്സിയാസ് ബൊൽസനാരൊ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനുവേണ്ടി ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ആദ്യമായാണ് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് അമർജവാൻ ജ്യോതിയ്ക്കു പകരം ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി സൈനികർക്ക് ആദരം അർപ്പിച്ചത്

രാജ്യത്തിന്റെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക പുരോഗതിയും വിളിച്ചറിയിക്കുന്ന നിരവധി നിശ്ചല ദൃശ്യങ്ങളും കലാപരിപാടികളും അണിനിരന്നു

എഫിലെ വനിതാ ബൈക്കർമാർ പരേഡിൽ ഇതാദ്യമായി സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെച്ചു

വ്യോമസേനയും റഫേൽ തേജസ് വിമാനങ്ങളുടെയും ലഘു യുദ്ധ ഹെലിക്കോപ്റ്ററുകളുടെയും ആകാശ് മിസൈലുകളുടെയും രൂപമാതൃകകൾ പ്രദർശിപ്പിച്ചു ചിനോക് അപ്പാഷെ ഹെലിക്കോപ്റ്ററുകളും ഉപഗ്രഹവേദ സംവിധാനമായ ശക്തിയും കരസേനയുടെ യുദ്ധടാങ്കായ ഭീക്ഷ്മയും പരേഡിന് കൌതുകമായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിധിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ പ്രകാശ് ജാവ്ദേക്കർ ബിജെപി അധ്യക്ഷൻ ജെ

നദ്ദ ലോക്സഭാ സ്പീകർ ഓംബിർള കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി മുൻപ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗ് മുതിർന്ന ബിജെപി നേതാവ് എൽ

അദ്വാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് റിപ്ലബ്ലിക് ദിന ആശംസകൾ നേർന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുല്യനീതി എന്നീ ഭരണഘടനാപരമായ ആശയങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്യാൻ വെങ്കയ്യനായിഡു ആശംസാസന്ദേശത്തിൽ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ജനങ്ങൾക്കും റിപ്പബ്ലിക് ദിന ആശംസകൾനേരുന്നതായി ട്വിറ്ററിൽ കുറിച്ചു

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റഡിയത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയപതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ രണ്ടുവർഷങ്ങളിലെ പ്രളയങ്ങൾക്കിടയിലും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ഗവർണ്ണർ എടുത്തുപറഞ്ഞു ഗവൺമെന്റിന്റെ വികസന സംരംഭങ്ങൾ കേരളത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭ്യമാക്കി പല മേഖലകളിലും ഗവൺമെന്റിന്റെ നടപടികൾ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം വിലയിരുത്തി നിതി ആയോഗും ഐക്യരാഷ്ട്ര സംഘടനയും മുന്നോട്ടുവെച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആരോഗ്യ പൊതു വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം സ്വന്തമാക്കി ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനമാണ് ഇതിന് വഴിയൊരുക്കിയതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു

കോഴിക്കോട് ബീച്ചിൽ നടന്ന ജില്ലാ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നല്കുകയായിരുന്നു മന്ത്രി

എം കെ രാഘവൻ എം പി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എമാരായ എ പ്രദീപ്കുമാർ എം കെ മുനീർ പുരുഷൻ കടലുണ്ടി ജില്ലാ കലക്ടർ സാംബശിവറാവു പോലീസ് മേധാവികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് കോഴിക്കോട് ബീച്ചിൽ ഇത്തവണ പരിപാടി സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യസമര സേനാനികളും ചടങ്ങിൽ സംബന്ധിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകളേയും സ്കൂളുകളേയും ചടങ്ങിൽ ആദരിച്ചു

രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല നാം ഓരോരുത്തർക്കുമുണ്ട് കണ്ണൂരിൽ റിപ്പബ്ലിക്ക് ദിനപരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങൾക്ക് ഒപ്പം സ്റ്റുഡന്റ്സ് പോലീസ് സകൌട്ട് ആൻറ് ഗൈഡസ് റെഡ് ക്രോസ് എന്നിവരും അണി നിരന്നു സ്പെഷൽ സകൂൾ കുട്ടികളും പരേഡിൽ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചവർക്ക് മന്ത്രി ഉപഹാരം നൽകി ജില്ലാ കലക്ടർ ടി

സുഭാഷ് ജില്ലാ പോലീസ് മേധാവി ജി എച്ച് യതീഷ്ചന്ദ്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് മേയർ സുമാ ബാലകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു രുദ സുനിൽകുമാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വം നിർണയിക്കുന്നത് ഭരണഘടന നൽകുന്ന തുല്യതയുടെ പച്ചയായ ലംഘനമാണെന്ന് മന്ത്രി വി

സോഷ്യലിസം ജനാധിപത്യം മതേതരത്വം എന്നീ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന നീക്കങ്ങളെ പൌരസമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിത പെരുമാറ്റച്ചട്ടത്തോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി കൾ സംഘടിപ്പിച്ചത് ടെട്ട എ

ബാലമുരളി ജില്ലാ പൊലീസ് മേധാവി ജി ശിവവിക്രം ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു രുദ കൊല്ലം കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ

രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കരുത്തു പകരുന്ന ഭരണഘടനയുടെ കണ്ണികൾ കരുത്തോടെ നിലനിൽക്കണമെന്ന ഭരണഘടനാ ശിൽപ്പികളുടെ താൽപര്യം കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോപൌരന്റേയും കടമയാണെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബഞ്ചമിൻ ആദരിച്ചു

മണി ഇടുക്കി ജില്ലാപഞ്ചായത്ത് മൈതാനിയിൽ മന്ത്രി എം

രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിതെന്ന് മന്ത്രി പറഞ്ഞു

അക്കാദമി കമാണ്ടന്റ് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു

ടെട ലഡാക് ലഡാക്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പൊലീസ് കൊടുംതണുപ്പിലും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്

ഡിവിഷണൽ റെയിൽവേ മാനേജർ പ്രതാപ്സിംഗ് ഷമി ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു

കവരത്തി സ്ക്കൂൾ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ഷർമ്മ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു കഴിഞ്ഞ വർഷം മികവ് തെളിയിച്ച വിദ്യാത്ഥികൾക്കും കർഷകർക്കും അവാർഡുകൾ അഡ്മിനിസ്ട്രേറ്റർ വിതരണം ചെയ്തു

ഭരണഘടന സംരക്ഷിക്കണമെന്നും ദേശീയ പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം കളിയിക്കാവിള വരെ ദേശീയപാതയിൽ വൈകീട്ട് മനുഷ്യ ശൃംഖല തീർക്കുന്നത് നാലുമണിക്ക് ഭരണഘടനയുടെ ആമുഖം വായിച്ച ശേഷം പ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് കാസർകോട്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ശൃംഖലയുടെ ആദ്യകണ്ണിയും കളിയിക്കാവിലയിൽ പി ബി അംഗം എം എ ബേബി അവസാന കണ്ണിയുമാകും ടെടി സ്പീക്കർ ഗവർണറെ തിരിച്ചുവിളിക്കാൻ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രമേയ നോട്ടീസിൽ കാര്യോപദേശക സമിതി തീരുമാനമെടുക്കുമെന്ന് സ്പീക്കർ പി

നോട്ടീസിന് നിയമസാധുതയുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇന്ത്യയല്ലാതാകുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു

ബാലൻ സംസ്ഥാന ഗവൺമെന്റും ഗവർണ്ണറും തമ്മിലെ ബന്ധം വഷളാക്കാൻ ആരേയും അനുവദിക്കില്ലെന്ന് മന്ത്രി എ

ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കത്തിൽ തങ്ങളാണ് മുൻപന്തിയിലെന്ന ധാരണ ആർക്കുംവേണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ടെട്ടി കൊറോണ വൈറസ് മാരക കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ചൈനയിലെ ഇന്ത്യക്കാരുടെ ആരോഗ്യ സ്ഥിതി എംബസി നിരന്തരം പരിശോധിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ്

ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട കൂടുതൽ നടപടി സംബന്ധിച്ച് ചൈനീസ് അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു

ജനങ്ങളുമായി പ്രധാനമന്ത്രി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പരിപാടി വൈകീട്ട് ആറിന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

ടോസ് നേടിയ ന്യൂസിലാൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

സി പുനഃസംഘടന കെ പി സി സി പുനസംഘടന സംബന്ധിച്ച് വിയോജിപ്പുള്ളവർ പാർട്ടി കമ്മറ്റിയിലാണ് അഭിപ്രായം പറയേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടിക നൂറ് ശതമാനം കുറ്റമറ്റതാണെന്ന് പറയുന്നില്ല വനിതകൾക്ക് ഉൾപ്പടെ പ്രാതിനിധ്യം കൂടേണ്ടതുണ്ടെന്നും സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പിൽ ഇത് പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി